സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ മുന്നണികൾക്ക് ആവേശം പകർന്ന് ദേശീയ ന് നേതാക്കളുടെ തെരഞ്ഞെട്ടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു

സ്ഥിരീകരിച്ചു

ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുതുമയും നവീകരണവും ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻകി ബാത്തിൽ പറഞ്ഞു

കോളേജിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അസോസിയേറ്റ് പ്രൊഫസർ ഡോ നിർമ്മല പത്മനാഭൻ ആകാശവാണിയോട്

അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലയിൽ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിൽ ഏതൊരു തുടക്കവും ഉത്സവമായി ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മുന്നണികൾക്കാവേശമായി ദേശീയ നേതാക്കളുടെ പ്രചാരണം തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ വോയിസ് എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി കോഴിക്കോട് എലത്തൂരിൽ റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു തുടർന്ന് തൃശ്ശൂരിലെ പുതുക്കാട് എൻ

തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്രമന്ത്രി രാജ് നാഥ് സിംഗ് വർക്കലയിൽ റോഡ്ഷോയിൽ പങ്കെടുത്തു

സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി

സി

ഐ

സി

ഐ

ജനറൽ സെക്രട്ടറി കെ

ന്യൂസ് ഡസ്ക് ആകാശവാണ്

മാറി മാറി സംസ്ഥാനം ഭരിച്ച എൽ ഡി എഫും യുഡി എഫുമാണ് അതിനുത്തരവാദികളെന്നും ഇതിന് മാറ്റം വരണമെന്നും കോട്ടയം പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പു പ്രചരണ യോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു സ്മൃതി ഇറാനി യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ പിണറായി സർക്കാർ തകർത്തു കളഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോടാലിയിൽ പുതുക്കാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്മൃതി ഇറാനി കോഴിക്കോട് എൻ ഡി എ യുടെ പ്രചാരണത്തിനായി കോഴിക്കോട് ജില്ലയിലെത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർഥി ടി പി ജയചന്ദ്രന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയിൽ പങ്കെടുത്തു കക്കോടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മുഖ്യമന്തി സർക്കാറിന്റെ ക്ഷേമപദ്ധതികൾ ജന്നങ്ങൾക്കുള്ള സൌജന്യമായല്ല ജീവിക്കാനുള്ള അവകാളിത്തിന്റെ ഭാഗമായാണ് കാണേണ്ടെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വിശേഷാവസരങ്ങളിൽ പെൻഷനും ശമ്പളവും നേരത്തെ നൽകാറുണ്ട്

തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡ് വ്യാപനം തടയാൻ കൂടുതൽ ജാഗ്രത് പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്റൽ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പിന് സംസ്ഥാനത്ത് ് തുടക്കമായി

അവശ്യ സർവീസിൽപ്പെട്ടവരും അപേക്ഷ നൽകിയവരിൽ പോസ്റൽ വോട്ടിന് അർഹ്രായവരുമായ സമ്മതിദായകർക്കു രാവിലെ ഒമ്പതു മുതൽ വൈകുന്നേരം അഞ്ചുവരെ ഈ കേന്ദ്രങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ സൌകര്യമുണ്ടാകും

മത്സ്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടമായി

രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്ത്ല് ഇന്ന് കൊല്ലം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പള്ക്കടുത്തു ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വൃക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു

കോടതിയിൽ വിശ്വാസമില്ലാത്തവരാണ് പ്രശ്നം വീണ്ടും ഉയർത്തുന്നതെന്ന് അവർ പറഞ്ഞു

ബാക്കി കേന്ദ്ര അധികാര പരിധ്യിയിലാണെന്നും അദ്ദേഹം വൃക്തമാക്കി

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ പുറകിൽ നിന്നും വലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

സർക്കാർ ഉയർത്തിക്കാട്ടുന്ന് വിഷയങ്ങങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുക വഴി ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എ

ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ

ഇക്കാര്യത്തിൽ സത്വര നടപടി വേണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് പ്രകടനപത്രിക തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ഓശാന വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് വിവിധ സഭാധ്യക്ഷന്മാർ നേതൃത്വം നൽകി

കുരുത്തോല വിതരണത്തിനായി പ്പള്ളികളിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഓൺ ലൈനായി ചടങ്ങുകൾ കാണാനുള്ള സാഹചര്യം മിക്കൂദേവാലയങ്ങളും ഒരുക്കിയിരുന്നു

പൂരം പ്രദർശനം ഓൺലൈൻ ബുക്കിംഗ് വഴി നിയന്ത്രിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പിൻവലിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കൊവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് പൂരം പ്രദർശനം സാധാരണ നിലയിൽ നടത്തും ഇതുസംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു

പമ്പയിലെ ആറാട്ടിനെ തുടർന്ന് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും രാത്രി ഒൻപത് മണിയോടെ നട അടയ്ക്കും രാജ്നാഥ്സിംഗ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജൂഡീഷൽ അന്വേഷണം ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇത് ഭരണഘടനയ്ക്ക് എതിരാണ്

ശബരിമലയിൽ വിശ്വാസസംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമെന്നും ശ്രീ രാജ്നാഥ്സിംഗ് പറഞ്ഞു